വോട്ടെടുപ്പ് വെള്ളിയാഴ്ച

ഇന്തൃയിലേയ്ക്ക് ആകർഷിക്കാൻ കേന്ദ്രം സമഗ്ര നയം കൊണ്ടുവരികയാണെന്ന് വൃവസായ മന്ത്രി സുരേഷ് പ്രഭു

ജെ

നിയോഗിച്ചു കേന്ദ്രസംഘം ഗവർണർക്ക് നിവേദനം നൽകി

ലോക കപ്പ് ഹോക്കി പുരുഷ വിഭാഗത്തിൽ ഇന്തൃ ബെൽജിയം പോരാട്ടം ഇന്ന് ഭുവനേശ്വറിൽ

എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മുതിർന്ന നേതാ ക്കൾ സംസ്ഥാനമുടനീളം തെരഞ്ഞെടുപ്പ് റാലികൾ സംഘടി പ്പിച്ചുവരികയാണ് കൂടുതൽ വിവരങ്ങളുമായി വീണ മുകുന്ദൻ വോയിസ്ക് രാജസ്ഥാനിൽ ബി

യും ക്ടോൺഗ്രസും പ്രചാരണ ചുമതലകൾ കേന്ദ്ര നേതാക്കളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് വികസനമാണ് ബി ജെ

യുടെ മുഖ്യ അജണ്ട എന്നാണ് ബിക്കാനറിൽ വാർത്താസമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജ് പ്റ്റഞ്ഞത് കഴിഞ്ഞ അഞ്ച് വർഷമായി മുഖ്യമന്ത്രി വസുന്ധരക്ക്കാള്ജ ജനങ്ങളുമായി യാതൊരു തരത്തിലും സംവദിച്ചില്ലെന്നാണ് മുൻ മുഖ്യമന്ത്രി അശോക് ഗഹ്ലോട്ട് ആരോപിച്ചത് തെലങ്കാനയിലും മുഖ്യപാർട്ടികളുടെ മുതിർന്ന നേതാക്കളെല്ലാം പ്രചാര ണത്തിനായി രംഗത്തുണ്ട്

ജെ

അധ്യക്ഷൻ അമിത്ഷാ മുതിർന്ന നേതാക്കളായ നിതിൻ ഗഡ്കരി യോഗി ആദിത്യനാഥ് എന്നിവർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പ്രചരണങ്ങളാണ് നടത്തുന്നത് ഉപ്പലിലെ റോഡ്ഷോയിൽ പങ്കെടുത്ത നിതിൻ ഗഡ്കരി എൻ ഡി എ

ജെ

പാർട്ടി അധ്യക്ഷൻ അമിത്ഷായും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഹൈദരബാദിലെ വിവിധ മേഖല കളിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേശ് വീരപ്പമൊയ്ലി മുഹമ്മദ് അസ്ഹറുദ്ദി ഗുലാംനബി ആസാദ് എന്നിവരും സജീവമായി പ്രചരണ രംഗത്തുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

അദ്ദേഹം ഏകദേശം രണ്ടര വർഷത്തോളം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തുടരും

എന്നാൽ ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നതായി അർമേരിക്ക് അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി വീണ മു്ക്കുന്ദൻ

പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതായി വ്യക്തമാക്കിയ യു

വ്യാവസായിക വളർച്ചയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തു മുന്നോട്ടു പോകുമെന്ന് അറിയിച്ചു

തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടികളെടുക്കുന്ന ഹാംബർഗ് പ്രഖ്യാപനം നടപ്പിൽ വരുത്തണമെന്നും ശ്രീ

വ്യാവസായിക തട്ടിപ്പുകൾ നടത്തി രാജ്യത്തുനിന്നും പാലായനം ചെയ്യുന്നവരുടെ അനധികൃത ആസ്തികൾ പിടിച്ചെടുക്കാനും അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിനുമുള്ള ഒമ്പതിന പദ്ധതിയും പ്രധാനമന്ത്രി മുന്നോട്ടുവച്ചു

സാമ്പത്തികമായി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലേക്ക് വരാൻ ശ്രീ

ഇന്ത്യയുടെ മഹത്തായ ചരിത്രവും നാനാത്വവും ഊഷ്മളമായ ആതിഥേയ മര്യാദയും അറിയാൻ ഇത് അവസരമാക്കാ മെന്ന് പ്രധാനമന്ത്രി ലോക നേതാക്കളോട് പറഞ്ഞു

വ്യാപാര മേഖലയിൽ ഉണ്ടായിട്ടുള്ള ശീതസമരം അവസാന്മിപ്പിക്കാനുള്ള ചർച്ചകൾ തുടരാനും ഇരുരാജ്യ ങ്ങളും സമ്മതിച്ചിട്ടുണ്ട്

മുംബൈയിൽ നടന്ന ഇന്ത്യ ഹീൽസ് അറ്റ് അഡാന്റേജ് ഹെൽത്ത് കെയർ ഇന്ത്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി വിദേശത്ത് നിന്ന് ഇന്ത്യയി ലേയ്ക്ക് ചികിത്സയ്ക്ക് എത്തുന്നവർക്ക് എല്ലാ ചികിത്സാ സഹായവും താങ്ങാനാവുന്ന ചെലവിൽ ഗവൺമെന്റ് നൽകി വരുന്നതായി ശ്രീ

മേഖലയിലെ സുരക്ഷാ ചെക്ക് പോയിന്റുകളിൽ താലിബാൻ തീവ്രവാദികളിൽ നടത്തിയ തുടർച്ചയായ ആക്രമണങ്ങളാണ് കലാപത്തിന് കാരണമായതെന്ന് പ്രവിശ്യ കൌൺസിൽ അംഗം അബ്ദുൾ അഹദ് അൽബെഗ് പറഞ്ഞു

ദേശീയ അധ്യക്ഷൻ ക്ഷ്മിത്ഷായുടെ നിർദ്ദേശപ്രകാരം ശബരിമലയിലെ സ്ഥിതിഗതികൾ ്മുനസ്സീലാക്കാനെത്തിയ കേന്ദ്രസംഘം ഗവർണർ ജസ്റ്റിസ് പി

ഭക്തരുടെ ആശങ്ക അകറ്റാൻ നടപടി എടുക്കണ്ണ്ട്മുന്ന് സംഘം ഗവർണറോട് അഭ്യർത്ഥിച്ചു സുരക്ഷയുടെ പേരിൽ ക്യൂർത്ഥാടകരെ പൊലീസ് ശല്യപ്പെടുത്തുക യാണെന്നും കൂട്ടംകൂട്ട്മായി തീർത്ഥാടകരെത്തുന്ന ശബരിമലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് നീതീകരിക്കാനാവില്ലെന്നും കാട്ടി സംഘം ഗവർണർക്ക് നിവേദനം നൽകി ഇവർ ഉന്നയിച്ച കാര്യങ്ങൾ മുഖൃമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് ഗവർണർ ഉറപ്പു നൽകി

ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി സരോജ് പാണ്ഡെ എം പി പ്രഹ്ലാദ് ജോഷി എം

പട്ടികജാതി മോർച്ച ദേശീയ പ്രസിഡന്റ് വിനോദ് ശങ്കർ എം പി നളിൻകുമാർ കാട്ടീൽ എം

എന്നിവരാണ് കേന്ദ്ര സംഘത്തിലുള്ളത്

ജെ

സംസ്ഥാന പ്രസിഡന്റ് പി ശ്രീധരൻപിള്ള വി മുരളീധരൻ എം

നേതാക്കളായ എ

രാധാകൃഷ്ണൻ ശോഭസൂരേന്ദ്രൻ എന്നിവരും സംഘത്തോടൊ പ്പമുണ്ടായിരുന്നു

കൂടുതൽ വിവരങ്ങളുമായി വീണ മുകന്ദൻ വോയിസ് ആയുഷ്മാൻ പദ്ധതിയിലുൾപ്പെടുത്തി പത്തുകോടി നിർധന കൂടുംബങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ഇൻഷറൻസ് പരിരക്ഷ ഏർപ്പെടു ത്തിയത് രാജ്യത്തെ മികച്ച മാതൃ ശിശു ആരോഗ്യ സൂചകമാണെന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യനായിഡു അഭിപ്രായപ്പെട്ടു ചെന്നൈയിൽ ഒരു ആശുപത്രി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യമൊട്ടാകെ പുതുതായി ഒന്നര ലക്ഷം ആരോഗ്യകേന്ദ്രങ്ങൾ സ്ഥാപി ക്കാനുള്ള കേന്ദ്ര തീരുമാനം ആരോഗ്യരംഗത്തെ പുരോഗതിയിലെത്തി ക്കുമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു ഇന്ത്യപോലെ വികസ്വര രാജ്യങ്ങൾ കൂട്ടികൾക്ക് ആരോഗ്യവും സന്തോഷവും പ്ലിദ്ദാനം ചെയ്യുന്ന ബാല്യം ഉറപ്പാക്കേണ്ടതാണ് നവജാത ശിശുക്കൾക്കൂർ ്അഞ്ച് വയസ്സിനു താഴെ പ്രായമുള്ള കുട്ടികൾക്കും മികച്ച ചിക്ടിത്സ്ക്കൊപ്പം രോഗപ്രതിരോധ ശേഷി വർധിപ്പിക്കാനും നടപടികൾ സ്പീക്കര്ക്കണം ചികിത്സാരംഗത്ത് ഗവൺമെന്റ് സ്രകാർ ൃ പങ്കാളിത്തത്തിന്റെ സാധൃതകൾ പ്രയോജനപ്പെടുത്തണമെന്നൂർ ്രാഷ്ട്രപതി നിർദ്ദേശിച്ചു

സാമൂഹിക പ്രതിബദ്ധത്തൂ നിലനിർത്താൻ ചികിത്സാരംഗത്തെ വൻകിട സംരംഭകർ ഗ്രാമീണ മേഖ്ലകളിൽ ചികിത്സാ സൌകര്യമൊരുക്കണ മെന്നും ഉപരാഷ്ട്രപതി നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി